മലയാളി ജവാൻ വി

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്നു ഗോളുകൾക്ക് ചെന്നൈയിൻ എഫ്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാജ്യരക്ഷാ മന്ത്രി നിർമലാ സീതാരാമൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജരിവാൾ ഉൾപ്പെടെ നേതാക്കളും സൈനിക മേധാവികളും വീരമൃത്യുവരിച്ച ജവാന്മാർക്ക് അന്ത്യാഞ്ജലിയർപ്പിച്ചു തുടർന്ന് മൃതദേഹങ്ങൾ അലങ്കരിച്ച വാഹനങ്ങളിലും എയർ ഇന്ത്യാ വിമാനങ്ങളിലുമായി ജന്മനാടുകളിലേക്ക് കൊണ്ടുപോയി

കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇ പി ജയരാജൻ എന്നിവർ സംസ്ഥാന ബ്ഹുമതികളോടെ മൃതദേഹം ഏറ്റുവാങ്ങി അന്ത്യോപചാരം അർപ്പിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും മുഖ്യമന്ത്രിക്കും വേണ്ടി മന്ത്രിമാർ ഉപചാരമർപ്പിക്കും തുടർന്ന് റോഡുമാർഗം ഭൌതികശരീരം ജന്മനാടായ വയനാട്ടിലേക്ക് കൊണ്ടുപോകും ലക്കിടി എൽ

ഭീകരരെയും അവരെ നിയന്ത്രിക്കുന്നവ രെയും നേരിടാൻ സൈനൃത്തിന് പൂർണ്ണ സാതന്ത്രൃമാണ് നൽകിയിട്ടുള്ള തെന്ന് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ പറഞ്ഞു ഗൂഢാലോ ചനകളിലൂടെയും ഭീകരപ്രവർത്തനങ്ങളിലൂടെയും രാജ്യത്തെ അസ്ഥിരപ്പെ ടുത്താമെന്നാണ് നമ്മുടെ അയൽക്കാർ വ്യാമോഹിക്കുന്നത് ഭീകരാക്രമണ ങ്ങൾക്ക് കനത്ത പില നൽകേണ്ടിവരുമെന്നും ഭീകരാക്രമണങ്ങൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരാക്രമണത്തിൽ വീര മൃത്യു വരിച്ച സുരക്ഷാസൈനികർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലികളർപ്പിച്ചു രദ്ദമ്പ്പെട്ടറ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും

ഭീകരാക്രമണത്തെ തുടർന്ന് കേന്ദ്രം കൈകൊണ്ട നടപടികൾ പാർട്ടി നേതാക്കളെ ധരിപ്പിക്കും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിതല സമിതിയുടെ യോഗത്തിലാണ് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനമായത്

പുൽവാമ അവന്തിപുര എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഭീകരാക്രണം ആസൂത്രണം ചെയ്യുന്നതിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കരുതുന്നു ചാവേറിന് സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിച്ചു നൽകിയെന്ന് കരുതുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ പോലീസ് തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് പുറമേ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ആക്രമണത്തെകുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ദുരന്ത സ്ഥലത്ത് നിന്ന് ഫോറൻസിക് പരിശോധനക്ക് ആവശ്യമായ വസ്തുക്കൾ അന്വേഷണ സംഘം ശേഖരിച്ചു

തകർന്ന ബസിന്റെ അവശിഷ്ടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആക്രമണത്തിന് ഐ

ഡി ഉപയോഗിച്ചിട്ടില്ലെന്ന് വ്യക്തമായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു

എക ്സ് ആണ് തീവ്രവാദികൾ ഉപയോഗിച്ചതെന്നാണ് കരുതുന്നത്

നൂറ് മീറ്ററോളം ദൂരപരിധിയിൽ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറി കിടന്നുവെന്നും സി ആർ

എഫ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു

മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിയന്ത്രണം രണ്ടാഴ്ചയ്ക്ക്കൂടി നീട്ടുകയും ചെയ്തു

ദേശീയ അഗ്മാർക്ക് എക്സ്പോ കൊല്ലം കണ്ടോൺമെൻറ് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഏജൻസികളുടെയും ഇടനിലക്കാരുടെയും ചൂഷണത്താൽ ദയനീയ അവസ്ഥയിലായ കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കാർഷികോത്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതുവഴി സാധിക്കുമെന്നും ഗവർണർ പറഞ്ഞു മന്ത്രി വി എസ് സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു വെളിച്ചെണ്ണ മറയൂർ ശർക്കര തേൻ തുടങ്ങിയ ഉത്പന്നങ്ങളിലെ മായംചേർക്കൽ വിപണിയിലും കർഷകർക്കും വെല്ലുവിളികൾ ഉയർത്തുന്നതായി മന്ത്രി പറഞ്ഞു ദർശ്ശേര ശാരീരികവും മാനസികവുമായ സുസ്ഥിരതയുള്ള ജനതയെ വാർത്തെ ടുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ

ജി ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആരോ ഗൃപ്രവർത്തനങ്ങൾ പൂർണ വിജയത്തിലെത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭ രണ സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്നും മന്ത്രി പറഞ്ഞു

എറണാകുളം കളമശേരിയിൽ മെട്രോ റെയിൽ പൊലീസ് സ്റ്റേഷൻ കോഴിക്കോട് പന്തീരാങ്കാവ് പത്തനം തിട്ടയിലെ ഇലവുംതിട്ട ഇടുക്കിയിലെ ഉടുമ്പുംചോല കാസർകോട്ടെ മേൽപ റമ്പ് കൊല്ലത്തെ കണ്ണനല്ലൂർ സ്റ്റേഷനുകളാണ് നാളെ പ്രവർത്തനമാരംഭിക്കുക

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻമേഖലാ കേരള സംരക്ഷണ യാത്രക്ക് ഇന്ന് ഉപ്പളയിൽ തുടക്കമാവും വൈകീട്ട് മൂന്നിന് സി

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി യാത്ര ഉദ്ഘാടനം ചെയ്യും

പോൾവാൾട്ടിൽ എ കെ സിദ്ധാർഥാണ് കേരളത്തിനായി സ്വർണം നേടിയത്

മീറ്റിൽ ഇന്ന് എട്ട് ഫൈനലുകൾ നടക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ചെന്നൈയിൻ എഫ്

ദർവ്വെടു കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി പത്തിന് അടയ്ക്കും

ഉച്ചപൂജയോടനുബന്ധിച്ച് കളഭാഭിഷേകവും സഹസ്ര കലശാഭിഷേകവും ഉണ്ടാകും

തളിപ്പറമ്പ് എം

എ ജയിംസ് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി

ഡി

ഡി എഫിലെ പതിനൊന്ന് അംഗങ്ങളും ഒരു കോൺഗ്രസ് അംഗവും ഒരു സ്വതന്ത്രനും പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ മറ്റ് യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു രുട്ടിട്ട്ട്ട്ട്ട്ട്ട കയറ്റുമതിയുടെ നോഡൽ ഏജൻസിയായി വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിനെ മാറ്റുമെന്ന് മന്ത്രി വി

ജൈവകൃഷിയും ഗുണമേന്മയുള്ള ഉത്പാദനവും എന്ന വിഷയ ത്തിൽ തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച ദ്വിദിന സംസ്ഥാനതല ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

ഒരു വർഷമെങ്കിലും എടുക്കുമായിരുന്ന പ്രവൃത്തികളാണ് നാലുമാസംകൊണ്ട് തീർത്തത്